സ്വാമിത്വ പദ്ധതി പ്രോപ്പർട്ടി കാർഡുകളുടെ വിതരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും

സംസ്കാര ചടങ്ങുകൾ പട്നയിൽ പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു

ഗ്രാമീണ ഇന്ത്യയിൽ പരിവർത്തനാത്മക സ്വാധീനം ചെലുത്തുകയും ആളുകളെ ശാക്തികരിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ലക്ഷത്തോളം പ്രോപ്പർട്ടി ഉടമകൾക്ക് അവരുടെ മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്ന എസ് എം എസ് ലിങ്ക് വഴി പ്രോപ്പർട്ടി കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാൻ സാധിക്കും

വായ്പയും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും സ്വീകരിക്കുന്നതിന് ഗ്രാമീണരുടെ സാമ്പത്തിക ആസ്തിയായി സ്വത്ത് ഉപയോഗിക്കുന്നതിന് ഈ നീക്കം വഴിയൊരുക്കും

ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീര്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ക്ക്ന്ദ്രബ്മാങ്ക് നിലപാട് വ്യക്തമാക്കിയത് കൂടുതൽ കാലം മൊറുട്ടോറിയം അനുവദിക്കുന്നത് ഉപഭോക്താക്കളെ മോർട്ട്മായി സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും വായ്പാ തിരിച്ചടവുകളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും ആർ

ഐ സുപ്രീം കോടതിയിൽ അറിയിച്ചു വിഷയത്തിലെ പ്രതികരണം അറിയിക്കണമെന്ന് പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിനോടും റിസർവ് ബാങ്കിനോടും തിങ്കളാഴ്ച ആവശ്യപ്പെട്ടിരുന്നു

ആർ

സി പ്രകാരമുള്ള കുറ്റകൃതൃങ്ങളിൽ പ്രാഥമിക വിവര റിപ്പോർട്ട് കർശനമായും രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നീതി ഉറപ്പാക്കുന്നതിനെ പ്രതികൂലമായി ബാധിക്കും ഇത്തരം വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും വേണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദേശം നൽകി

നിലക്കടല സംസ്കരിച്ച എണ്ണ ഗോതമ്പ് ബസ്മതി അരി മറ്റ് അരി ഇനങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിൽ വർദ്ധനവ് രേഖപ്പെടുത്തി

മകൻ ചിരാഗ് പാസ്വാൻ സംസ്ക്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി

ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി കേന്ദ്രമന്ത്രി രവി ശങ്കർ പ്രസാദ് കേന്ദ്ര സഹമന്ത്രിമാരായ നിത്യാനന്ദ റായ് അശ്വനി കുമാർ ചൌബേയ് പാർട്ടി പ്രവർത്തകൻ തുടങ്ങിയവർ അന്തരിച്ച നേതാവിന് വിട ചൊല്ലാൻ എത്തി ചടങ്ങിന് മുൻപ് നടന്ന വിലാപയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു

പുൽവാമ ജില്ലയിലെ ദാദൂരാ മേഖല കുൽഗാം ജില്ലയിലെ ചിനിഗാം ഗ്രാമം എന്നിവിടങ്ങളിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു

ഇതിനാൽ രോഗികളുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് അതിപ്രധാനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

രാജ്യത്തെ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടാകുന്നത്

ദേവിക എന്ന കുട്ടിയെ ഓർത്ത് അഭിമാനിക്കുന്നതായും അവളുടെ ശ്രുതി മധുരമായ ആലാപനം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ആശയത്തിന്റെ അന്തസത്തയെ വെളിപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു